ഭൌതിക ശരീരം ബ്യൂണസ് ഐറിസിലെ ജാർഡിൻ ലാപാസ് സെമിത്തേരി യിൽ സംസ്കരിച്ചു

യു സേവനം ഇന്ന് മുതൽ ലഭ്യമാകും

തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ രുടെ നിയമന ഉത്തരവ് നൽകിത്തുടങ്ങി കാർഷിക സംഘടനകൾ നടത്തുന്ന സമരം നിർത്തിവെക്കണമെന്ന് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ആവശ്യപ്പെട്ടു

എസ് എൽ ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു ഡീഗോ മറഡോണ ഇനി ഓർമ്മകളുടെ കളിക്കള ത്തിൽ ലോകം കണ്ട ജനകീയ ഫുട്ബോൾ മാന്ത്രി കന്റെ ഭൌതികശരീരം ബ്യൂണസ് ഐറിസിലെ ജാർഡിൻ ലാപാസ് സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതിക ളോടെ സംസ്കരിച്ചു മറഡോണയുടെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സംസ്കാര സ്ഥലത്ത് തന്നെ യാണ് അദ്ദേഹത്തെയും സംസ്കരിച്ചത് അർജന്റീന പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി യായ കാസ റൊസാഡയിൽ പൊതു ദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ ആയിരങ്ങൾ അന്ത്യാ ഞ്ജലി അർപ്പിച്ചു ബുധനാഴ്ച അർജന്റീനയിലെ ടിഗ്രേ യർ പട്ടണത്തിലെ വീട്ടിലായിരുന്നു മറഡോണയുടെ അന്തൃം അർജന്റീനയിലെ മൂന്നുദിവസത്തെ ദുഃഖാച രണത്തോടൊപ്പം ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ വേർപാടിൽ വിതുമ്പുകയാണ്

വയനാട് മാനന്തവാടി ജില്ലാ ആശു പത്രി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി കാസർകോട് മെഡിക്കൽ കോളേജ് എന്നിവ് ഇതിൽ ഉൾപ്പെടുന്നു ഇതോടെ മെഡിക്കൽ ക്യോളേജു കളിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മറ്റ് ആശുപത്രികളിലും ലഭ്യ മാകും ശബരിമലയിൽ ഓരോ ദിവസവും പ്രവേശിപ്പിക്കാ വുന്ന തീർത്ഥാടകരുടെ എണ്ണം കൂട്ടാൻ തീരുമാനമായി കോവിഡ് വ്യാപന തോത് വിലയിരുത്തി കൂടുതൽ ഭക്തരെ പ്രവേശിപ്പിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷ നായ സമിതി വിളിച്ച യോഗത്തിലാണ് തീരുമാനം തീർത്ഥാടകരുടെ എണ്ണം കൂട്ടണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംസ്ഥാന ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്ക് വോട്ട് ചെയ്യാൻ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കോവിഡ് ബാധി ച്ചവരെയും കാറന്റൈനിൽ കഴിയുന്നവരെയും പ്രത്യേക വിഭാഗം സമ്മതിദായകരായി പരിഗണിച്ചാണ് സംസ്ഥാന തെര ഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ വിജ്ഞാപനം പുറപ്പെ ടുവിച്ചത് വോട്ടെടുപ്പിന് തലേന്ന് വൈകിട്ട് മൂന്നുവരെ കോവിഡ് സ്ഥിരീകരിച്ചവർക്കും കാറന്റൈനിൽ കഴിയുന്നവർക്കും പോസ്റ്റൽ വോട്ട് അനുവദിക്കും ഇതിന് ശേഷം രോഗം സ്ഥിരീ കരിക്കുന്നവർക്ക് വൈകിട്ട് അഞ്ച് മുതൽ ആറുപ്രെ സ്റ്റേഷ നിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാം ഗവൺമെന്റ് നിയോഗിക്കുന്ന ആരോഗ്യ ഓഫീസർമാർ രോഗികളുടെയും കാറന്റൈനിൽ കഴി യുന്നവരുടെയും പട്ടിക തയ്യാറാക്കും സ്പെഷ്യൽ പോളിംഗ് ഓഫീസറും പോളിംഗ് അസിസ്റ്റന്റും ഇവരുടെ വീടുകളിലെത്തി സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റും ഇവ അടക്കം ചെയ്യാനാവശ്യ മായ കവറുകളും വിതരണം ചെയ്യും സത്യപ്രസ്താവനയും വോട്ട് രേഖപ്പെടുത്തിയ പോസ്റ്റൽ ബാലറ്റും വെവ്വേറെ കവറുകളിലിട്ട് ഒട്ടിച്ച് തിരികെ നൽകേണ്ട താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥരുടെ നിയ മന ഉത്തരവ് നൽകിത്തുടങ്ങി ഇ ഡ്രോപ് സോഫ്റ്റ് വെയർ സംവിധാനത്തിലാണ് ഉദ്യോഗസ്ഥരെ പോളിംഗ് സ്റ്റേഷനുകളിൽ വിന്യസിക്കുന്നത്

തൃശൂർ കോർപ്പറേഷനിലെ മുൻ പ്രതിപക്ഷ നേതാവും പുല്ലഴി ഡിവിഷൻ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി രുന്ന എം കെ മുകുന്ദൻ നിര്യാതനായി വൃക്ക രോഗത്തെ ത്തുടർന്ന് ആഴ്ചകളായി ചികിത്സയിലായിരുന്നു

മലപ്പുറം ജില്ലയിൽ മാവോയിസ്റ്റ് സാന്നിധൃ മേഖലക ളിലെ പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷ വിലയിരുത്താൻ ജില്ലാ പൊലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വിവിധ ബൂത്തുകൾ പരിശോധിച്ചു വനമേഖലയോട് ചേർന്ന ബൂത്തുകളിലാണ് പൊലീസ് സംഘം പരിശോധന നട ത്തിയത് നാല് വർഷം മുമ്പ് കരുളായി വനത്തിൽ പൊലീ സും മാവോയിസ്റ്റുകളും ഏറ്റുമുട്ടുകയും മാവോയിസ്റ്റു കൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു കാർഷിക സംഘടനകൾ നടത്തുന്ന കർഷക സമരം നിർത്തിവെയ്ക്കണമെന്ന് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ആവശ്യപ്പെട്ടു നേരത്തെ പ്രഖ്യാപിച്ച ഡിസം ബർ മൂന്നിന്റെ ചർച്ചയിൽ കർഷകർ പങ്കെടുക്കണ മെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ ദൂരദർശനും പരിപാടി തൽസമയം സംപ്രേ ഷണം ചെയ്യും ന്യൂസ് ഓൺ എയർ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ആകാശവാണി യൂ ട്യൂബ് ചാനലുകളിലും ഡി

ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേ ശിക ഭാഷകളിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും

ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് സിഡ്നിയിൽ തുടങ്ങും കോവിഡ് സാഹചര്യത്തിൽ എട്ട് മാസത്തിലേറെ മത്സരങ്ങളിൽ നിന്ന് മാറിനിന്ന ശേഷമാണ് ഇന്ത്യൻ ടീം ഇന്ന് ക്രീസിൽ ഇറങ്ങുന്നത് വിരാട് കോഹ്ലി നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ കെ എൽ രാഹുലാണ് വൈസ് ക്യാപ്റ്റൻ

കഴിഞ്ഞ ദിവസം അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസം ഡീഡോ മറഡോണയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചതിന് ശേഷമാണ് മത്സരം തുടങ്ങിയത്

കെ മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും കേരള ബാങ്കിന്റെ തെരഞ്ഞെടുത്ത ആദ്യ ഭരണ സമിതി ഇന്ന് അധികാരമേൽക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു

മന്ത്രി ഡോ തോമസ് ഐസക്ക് സംസ്ഥാന ബജറ്റ് പൂർവ്വ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമിടും ജനുവരി രണ്ടാം വാരത്തിൽ ബജറ്റ് അവതരിപ്പിച്ചേക്കും തെരഞ്ഞെടു പ്പിന്റെ സാഹചര്യത്തിൽ സമ്പൂർണ്ണ ബജറ്റോ വോട്ട് ഓൺ അക്കൌണ്ടോ എന്ന് കാര്യത്തിൽ തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഉച്ചകഴിഞ്ഞ് സർവ്വകലാശാലാ വൈസ് ചാൻസലർമാരുമായി ബജറ്റ് സംബന്ധിച്ച മന്ത്രി ഓൺലൈൻ ചർച്ച നടത്തും

പൊലീസ് നിയമ ഭേദഗതി പിൻവലിച്ചതിന് ശേഷം ചേരുന്ന ആദ്യ യോഗമാണ് ഇത് ഏഴിമല നാവിക അക്കാദമിയിൽ പ്രിശീലനം പൂർത്തിയാക്കിയ മിഡ്ഷിപ്പ്മെൻ മാരുടെയും കേഡറ്റു കളുടെയും പാസിംഗ് ഔട്ട് പരേഡ് നാളെ അക്കാദമി യിൽ നടക്കും കരസേനാ മേധാവി ജ്നറൽ എം എം നരവനെ പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതിനാൽ ഇത്ത വണ കേഡറ്റുകളുടെ ്രക്ഷിതാക്കളുടെ അഭാവത്തി ലായാരിക്കും പരേഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയുടെ തുടർ വാദം ഇന്ന് ബംഗലുരുവിലെ പ്രത്യേക കോടതിയിൽ നട ക്കും കൂടുതൽ വാദമുഖങ്ങൾ അവതരിപ്പിക്കാനുണ്ടെന്ന് ബിനീഷിന്റെ അഭിഭാഷകൻ അറിയിച്ചതിനെത്തുടർന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച വാദം മാറ്റിയത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട വ്യോമയാന ഡയറ ക്റേറ്റിന്റെ പരിശോധന പൂർത്തിയായി

കോവിഡ് നിയന്ത്രണങ്ങൾ നില നിൽക്കന്നതിനാൽ കൊടിയേറ്റ് മുതൽ ആറാട്ട് വരെ ദിവ സങ്ങളിൽ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന വർക്ക് മാത്രമാണ് ദർശനം

ഇന്നലെ രാത്രി ഏകാദശി വിളക്ക് എഴു ന്നള്ളിപ്പിന് കൊമ്പൻ ഇന്ദ്രസെൻ സ്വർണ്ണക്കോലം എഴു ന്നള്ളിച്ചു ഏകാദശി വ്രത സമാപനമായി ഭക്തർ വേദ ജ്ഞർക്ക് ദ്വാദശിപ്പണം സമർപ്പിച്ചു